മത തീവ്രവാദം സംബന്ധിച്ചു ആഭ്യന്തര മന്ത്രാലയത്തിന്റെ മുന്നറി യിപ്പുകൾ കേരളം അവഗണിക്കുകയാണെന്ന് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ സ്വകാരൃ മെഡിക്കൽ കോളജുകളിലെ ഫീസ് പുനർനിർണിയത്തി നെതിരെ സംസ്ഥാനം നൽകിയ ഹർജി ഇന്ന് സുപ്രീം കോടതിയിൽ വെല്ലിങ്ടൺ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് പത്ത് വിക്കറ്റ് തോൽവി

ബോളി വുഡ് ഗായകരും നർത്തകരും ഗുജറാത്തി നാടോടി ഗായകരും പങ്കെ ടുക്കുന്ന സാംസ്കാരിക പരിപാടിയും ഇതിന്റെ ഭാഗമായി സംഘടി പ്പിച്ചിട്ടുണ്ട് ഇതിനുശേഷം പ്രധാനമന്ത്രിയുടെ ഉച്ചവിരുന്നിൽ ട്രംപും കുടുംബവും പങ്കെടുക്കും തുടർന്ന് ആഗ്രയിലേക്ക് ട്രംപും നരേന്ദ്രമോദിയും മുതിർന്ന ഉദ്യോഗ സ്ഥരും വിമാനത്തിൽ യാത്രതിരിക്കും ഖേഡിയ വിമാനത്താവള ത്തിൽ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും ഗവർണർ ആനന്ദിബെൻ പട്ടേലും ചേർന്ന് ട്രംപിനെ സ്വീകരിക്കും ഒരു മണിക്കൂറോളം ട്രംപും കുടുംബവും താജ്മഹലിൽ ചെലവഴിക്കും അതിനുശേഷം അമേരി ക്കൻ പ്രസിഡന്റ് ഡൽഹിയിലേക്ക് യാത്രതിരിക്കും നാളെ രാവിലെ രാഷ്ട്രപതി ഭവനിൽ ട്രംപിനും പത്നിക്കും ആചാരപര മായ വരവേൽപ്പ് നൽകും അതിനുശേഷം രാജ്ഘട്ടിലെത്തുന്ന ട്രംപും മെലാനിയയും മഹാത്മാഗാന്ധി സമാധിയിൽ ആദരാഞ്ജലി അർപ്പിക്കും

ഉഭ യകക്ഷി മേഖലാ വിഷയങ്ങളും വാണിജ്യം ഊർജ്ജം രാജ്യരക്ഷാ ഭീകരവാദം എന്നിവ ചർച്ചയാവും ഏതാനും ധാരണാ പത്രങ്ങളിലും കരാറുകളിലും ഇരു നേതാക്കളും ഒപ്പുവെയ്ക്കുമെന്നാണ് റിപ്പോർട്ട് ചർച്ചകൾക്ക് ശേഷം പ്രധാനമന്ത്രി ഒരുക്കുന്ന വിരുന്ന് സൽക്കാര ത്തിൽ അദ്ദേഹം സംബന്ധിക്കും വൈകീട്ട് രാഷ്ട്രപതി ്രാംനാഥ് കോവിന്ദുമായി രാഷ്ട്രപതി ഭവനിൽ അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും ട്രംപിനൊപ്പം മുതിർന്ന ഉദ്യോഗസ്ഥ സംഘവും പരിപാടിയിൽ പങ്കെടുക്കും

യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സന്ദർശന പരിപാടികൾ നടക്കുന്ന അഹമ്മദാബാദ് ഡൽഹി ആഗ്ര നഗരങ്ങൾ അതീവ സുരക്ഷാവലയത്തിലാണ് ആഭ്യന്തര മന്ത്രി അമിത്ഷാ ഇന്നലെ മൊട്ടേര സ് റ്റേഡിയത്തിലെത്തി തയ്യാറെടുപ്പുകൾ വിലയിരുത്തിയിരുന്നു പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിക്ക് ഇന്ന് ഒരു വർഷം പൂർത്തിയാ കും

ഓരോ വർഷവും ഗുണഭോക്താക്കളുടെ അക്കൌ ണ്ടിലേക്ക് ആറായിരം രൂപ മുന്ന് തവണകളായി നേരിട്ട് നൽകും ചെറുകിട നാമമാത്ര കർഷകർക്കാണ് പദ്ധതിയിൽ ധനസഹായം ലഭി ക്കുന്നത് മത ത്രീവ്രവാദം സംബന്ധിച്ച ആഭ്യന്തര മന്ത്രാലയത്തിന്റെ മുന്നറിയിപ്പു കൾ കേരളം അവഗണിക്കുകയാണെന്ന് ബി ജെ പ്പി സംസ്ഥാന പ്രസി ഡന്റ് കെ സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി രാജ്യസുരക്ഷ സംബന്ധിച്ച പ്രശ്നങ്ങൾ സംസ്ഥാന പൊലീസ് ഗൌരവത്തോടെ കൈകാര്യം ചെയ്യാത്തത് കൊണ്ടാണ് എൻ

എ അന്വേഷണം വേണ്ടിവരുന്ന ത് കുളത്തൂപ്പുഴ സംഭവം ഞെട്ടിക്കുന്നതാണെന്നും നാലു വർഷം മുമ്പും അവിടെ നിന്ന് വെടിക്കോപ്പുകളും ആയുധങ്ങളും പൊലീസ് പിടികൂടിയിട്ടുണ്ടെന്നും സുരേന്ദ്രൻ പറഞ്ഞു

ജെ പി പ്രസി ഡന്റായി സ്ഥാനമേറ്റ സുരേന്ദ്രന് കൊല്ലം ജില്ലാ കമ്മിറ്റി നൽകിയ സ്വീകരണ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ വീട്ടിലെത്തി ഉപഹാരം കൈമാറി മൻകീ ബാതിൽ പ്രധാനമന്ത്രിയുടെ ആദരം ലഭിച്ച ഭാഗീ രഥിയമ്മയ്ക്ക് വാർധക്യകാല പെൻഷൻ നേടിക്കൊടുക്കാൻ പാർട്ടി ശ്രമിക്കുമെന്ന് സുരേന്ദ്രൻ ഉറപ്പു നൽകി ദേശീയ പൌരത്വ രജിസ്റ്ററുമായി ബന്ധപ്പെട്ട് പ്രാഥമിക ചർച്ചകൾ പോലും നടന്നിട്ടില്ലെന്ന് മിസോറാം ഗവർണർ പി എസ് ശ്രീധരൻപിള്ള അറി യിച്ചു ദേശീയ പൌരത്വ നിയമ ഭേദഗതി ആരെയും ഒഴിവാക്കാനല്ല എല്ലാവരെയും ഉൾകൊള്ളാനാണെന്നും അദ്ദേഹം പറഞ്ഞു

കോഴിക്കോട് വിജിൽ ഹ്യൂമൻ റൈറ്റ്സ് സംഘടിപ്പിച്ച പി ടി ഉമ്മർക്കോയ അനുസ്മരണ പ്രഭാഷണം നടത്തുകയായിരുന്നു ശ്രീധ രൻപിളള സ്വകാര്യ മെഡിക്കൽ കോളേജുകളിലെ ഫീസ് പുനർനിർണ്ണയിക്കാൻ ഹൈക്കോടതി തീരുമാനിച്ചതിനെതിരെ സംസ്ഥാന ഗവണ്മെന്റ് നൽകിയ ഹർജി ഇന്ന് സുപ്രീം കോടതി പരിഗണിക്കും ജസ്റ്റിസ് അരുൺ മിശ്ര അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത് കഴിഞ്ഞ മൂന്ന് അധ്യയന വർഷങ്ങളിൽ ഫീസ് നിർണയ സമിതി കണക്കാക്കിയ ഫീസ് പുനർനിർണയിക്കാൻ രേഖകൾ ഹാജരാക്കാൻ കോളേജുകളോട് ഹൈക്കോടതി നിർദ്ദേശിച്ചതിനെ ചോദ്യം ചെയ്താണ് സംസ്ഥാന ഗവണ്മെന്റ് സുപ്രീംകോട്ടതിയെ സമീപിച്ച ത് വെല്ലിംഗ്ടൺ ക്രിക്കറ്റ് ടെസ്റ്റിൽ ന്യൂസിലാൻഡിന് എതിരെ ഇന്ത്യക്ക് പത്ത് വിക്കറ്റ് തോൽവി രണ്ടാം ഇന്നിംഗ്സിൽ ഇന്ത്യ ഉയർത്തിയ ഒൻപത് റൺസ് വിജയലക്ഷ്യം വിക്കറ്റൊന്നും നഷ്ടപ്പെടാതെ ന്യൂസിലാൻഡ് മറികടക്കുകയായിരുന്നു

രണ്ടാം ടെസ്റ്റ് ശനിയാഴ്ച ക്രൈസ്റ്റ് ചർച്ചിൽ നടക്കും ഇന്ത്യൻ സൂപ്പർ ലീഗ് ആറാം സീസണിലെ അവസാന മത്സരത്തിൽ ഒഡീഷയ്ക്കെതിരെ കേരള ബ്ലാസ്റ്റേഴ്സിനു സമനില

എല്ലാ ജില്ലകളിലും ജി വി രാജ മോഡൽ സ്കൂളുകൾ സ്ഥാപിക്കുമെന്ന് മന്ത്രി ഇ

കൊല്ലം ആശ്രാമം ന്യൂഹോക്കി സ്റ്റേഡിയത്തിൽ ആരംഭിച്ച സ്പോർട്സ് ലൈഫ് ഫ്ടിറ്റ്നെസ് സെന്റർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി കായിക ്താരങ്ങൾക്കും പൊതുജനങ്ങൾക്കും ഉപയോഗിക്കാൻ കഴിയുന്ന സൌകരൃങ്ങൾ ഫിറ്റ്നെസ് സെന്ററിൽ ഒരുക്കിയിട്ടുണ്ട് രാജ്യത്തിന്റെ മതേതരത്വം കൂടുതൽ ശക്തിപ്പെടാൻ പൊതുവിദ്യാഭ്യസത്തിൽ കുട്ടികളെ പങ്കാളികളാക്കാൻ രക്ഷിതാക്കൾ ശ്രമിക്കണമെന്ന് മന്ത്രി ഡോ

എടപ്പാൾ കണ്ടനകത്ത് കാലടി ഗ്രാമീണ വായനശാലയുടെ വാർഷികാഘോഷ സമാപനവും മാഗസിൻ പ്രകാശനവും നടത്തുകയായിരുന്നു അദ്ദേഹം

സുധാകരൻ അമ്പലപ്പുഴയിൽ പറഞ്ഞു

മൂന്നാറിലെ സ്ട്രോബറി വിളവെടുപ്പ് രാവിലെ മന്ത്രി വി

സ്ട്രോബറി പാർക്കിന്റെയും വെബ്സൈ റ്റിന്റെയും ഉദ്ഘാടനം മന്ത്രി നിർവഹിക്കും

എസ് സുനിൽകുമാർ പറഞ്ഞു

നിപയും കൊറോണയും അടക്കം മാരക രോഗങ്ങളെ യോജിച്ച പ്രവർത്തനങ്ങളിലൂടെ കേരളത്തിൽ നിന്ന് ഇല്ലാതാക്കാൻ കഴിഞ്ഞ തായും എറണാകുളം ജില്ലയിലെ പായിപ്രയിൽ മന്ത്രി പറഞ്ഞു കുടും ബക്ഷേമ ആരോഗൃ ഉപകേന്ദ്രം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി നാടിന്റെ വളർച്ചയ്ക്ക് ആവശ്യമായ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുന്ന വിദഗ്ദരെ കണ്ടെത്താൻ ഹാക്കത്തോണുകൾ സഹായകമാകുമെന്ന് മന്ത്രി എ

ക്രൈസ്റ്റ് കോളേജ് ഓഫ് എഞ്ചിനി യറിങ്ങും മംഗളം കോളേജ് ഓഫ് എഞ്ചിനിയറിങും തുടർസ്ഥാന ങ്ങൾക്ക് അർഹരായി

മുഴുവൻ പൊതു വിദ്യാലയങ്ങളിലും ലഹരി വിരുദ്ധ ക്ലബ്ബുകൾ രൂപീകരി ക്കാൻ തീരുമാനിച്ചതായി മന്ത്രി ടി

ലഹരി വിരുദ്ധ പ്രചാരണത്തിന് സ്റ്റുഡന്റ് പൊലീസ് കേഡറ്റുകൾ മുൻകൈയെടുക്കണം കലാലയങ്ങൾ നൂറു ശതമാനവും ലഹരിമുക്ത മായിരിക്കണമെന്നും മന്ത്രി നിർദേശിച്ചു കോഴിക്കോട് നടുവണ്ണൂർ ഗവൺമെന്റ് ഹയർസെക്കൻഡറി സ്കൂളിൽ സ്റ്റുഡന്റ് പൊലീസ് കേഡറ്റ് ഒമ്പതാം ബാച്ചിന്റെ പാസ്സിങ് ഔട്ട് പരേഡ് ഉദ്ഘാടനം ചെയ്യു കയായിരുന്നു മന്ത്രി സിപിഐഎമ്മുമായി യോജിച്ച് ഒരു സമരത്തിനും കോൺഗ്രസ് തയ്യാറല്ലെന്ന് കെ

സി സി പ്രസിഡണ്ട് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ആലപ്പുഴയിൽ പറഞ്ഞു ഇക്കാരൃം രാഹുൽ ഗാന്ധി സോണിയ ഗാന്ധി എന്നിവരുമായി ചർച്ച ചെയ്ത് തീരുമാനമായതാണ്

കിണറ്റിൽ വീണ യുവതിയെ സാഹസികമായി രക്ഷിച്ച തിരൂർ എസ് ഐ ജലീൽ കറുത്തേടത്തിനെ അഭിനന്ദിച്ച് മുഖ്യമന്ത്രി പിണറായി വിജ യൻ ഫേസ്ബുക്ക് പോസ്റ്റിട്ടു വൈരങ്കോട് ഉത്സവത്തിനെത്തിയ യുവതി ഫോൺ വിളിച്ചു കൊണ്ടിരിക്കെ അബദ്ധത്തിൽ കിണറ്റിൽ വീഴുകയായിരുന്നു പ്രതിസന്ധി ഘട്ടത്തിൽ സ്ഥൈരൃം യുവതിയെ രക്ഷിച്ച എസ് ഐയുടെ നടപടി അനുകരണീയ മാതൃകയാണെന്ന് മുഖ്യമന്ത്രി ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു മന്ത്രി കെ രാജു ഇടുക്കി ജില്ലയിൽ ഇന്ന് വിവിധ പരിപാടികളിൽ പങ്കെടു ക്കും രാവിലെ ചക്കുപള്ളം മ്ലാമല മൃഗാശുപത്രി കെട്ടിടങ്ങൾ മന്ത്രി ഉദ്ഘാടനം ചെയ്യും ഉച്ചയ്ക്ക് കോലാഹലമേട്ടിൽ കേരളാ വെറ്റിനറി യൂനിവേഴ്സിറ്റിയുടെ ഡയറി സയൻസ് ആന്റ് ടെക്നോളജി ഹോസ്റ്റൽ കെട്ടിടവും മന്ത്രി തുറന്നു കൊടുക്കും

തൃശൂർ സെന്റ് തോമസ് രണ്ടാം സ്ഥാനവും കൊല്ലം അമൃത വിശ്വ വിദ്യാ പീഠം മൂന്നാം സ്ഥാനവും നേടി